നിയമം പ്രാബ ല്യത്തിൽ വന്നു പൌരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി

പൌരത്യ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചതോടെ പാർലമെന്റ് പാസ്സാക്കിയ ബിൽ നിയമമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ ബിൽ പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

പൌരത്യ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി നിയമം ഭരണഘടനാ വിരുദ്ധമാ ണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിർദ്ദിഷ്ട നിയമം രാജ്യത്തിന്റെ മതേതരത്പത്തെ നിരാകരിക്കുന്നതാണെന്നും മുഖ്യ മന്ത്രി അഭിപ്രായപ്പെട്ടു പൌരത്വ ഭേദഗതി ബില്ലിനെതിരായി സി പി ഐ എമ്മും കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു കാഞ്ഞങ്ങാട് കോട്ട പ്പാറയിൽ ബി ജെ പി നേതാവ് മടിക്കൈ കമ്മാരന്റെ രണ്ടാം ചരമ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ

ലോക്സഭ നേരത്തെ പാസ്സാക്കിയ ബിൽ രാജ്യസഭയും ഇന്നലെ ഐക്യ കണ്ഠേന അംഗീകരിക്കുകയായിരുന്നു ബിൽ അംഗീകാരത്തിനായി ഇനി സംസ്ഥാന നിയമസഭകൾക്ക് അയച്ചുകൊടുക്കും പട്ടിക ജാതി പട്ടിക വർഗ്ഗു സംവരണത്തിന് ക്രീമിലെയർ ഏർപ്പെടുത്തുന്നതിനെ ഗവൺമെന്റ് അനു കൂലിക്കുന്നില്ലെന്ന് രാജ്യസഭയിൽ ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് വൃക്തമാക്കി ഭിന്നശേഷിക്കാരെ അകറ്റി നിർത്തുകയല്ല ചേർത്തു നിർത്തുക യാണ് വേണ്ടതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഭിന്നശേഷി ക്കാരെ മുഖ്യധാരയിൽ എത്തിക്കാൻ സാധ്യമായ ഉൾച്ചേർക്കലിനാണ് ഗവൺമെന്റ് നടപടിയെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ദേശീയ ഭിന്നശേഷി അവാർഡ് സംസ്ഥാന ത്തിന് സമർപ്പിക്കൽ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് വിതരണം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എൽ

സിയ്ക്കുള്ള ആദരം എന്നിവ മുഖ്യ മന്ത്രി നിർവഹിച്ചു

മൂന്നു മാസം കൂടുമ്പോൾ ഇരുസംസ്ഥാനങ്ങളും തമ്മിൽ നദീജല ചർച്ച നടത്തണമെന്നും ജലവിഭവ വകുപ്പ് സെക്രട്ടറി ബി അശോകിന്റെ നേതൃത്വ ത്തിൽ കേരള സംഘം ആവശ്യപ്പെട്ടു തെങ്ങ് കമുക് തോട്ടവിളകൾക്ക് വെള്ളം നനയ്ക്കാൻ സാമ്പത്തിക സഹായം നല്കുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിച്ചുവരികയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ ജലസേചനവകുപ്പായിരിക്കും സാമ്പത്തിക സഹായം നല്കുക കോഴിക്കോട് ബാലുശ്ശേരി ഗ്രാമപഞ്ചായ ത്തിലെ കോക്കല്പൂരിൽ ഹരിത സമൃദ്ധി ജൈവ പച്ചക്കറി കൃഷിവിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വർദ്ധിച്ച പ്രാധാനൃം നൽകണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കന്നുകുട്ടി പ്രദർശന ത്തിന്റെയും രോഗപ്രതിരോധ കൃാമ്പുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എൽ ഡി

മാവേലിക്കരയിൽ ഗദ്ദിക കലാമേളയുടെ സമാപനത്തോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സവാളയുടെ വില വർദ്ധന പിടിച്ചുനിർത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളിൽനിന്ന് ഇറക്കുമതി ചെയ്തതും ആഭ്യന്തര കമ്പോളത്തിൽ നിന്നും വാങ്ങിയതുമായ സവാള വിപണിയിലെത്തിക്കാൻ മന്ത്രി പി തിലോത്തമന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ വാർഷികപദ്ധതി നിർവഹണത്തിൽ കണ്ണൂർ ജില്ല ഒന്നാമതെ ത്തി

സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് യു ഡി എഫ് തയ്യാറാക്കിയ ധവളപത്രം പ്രതിപിക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും

സതീശൻ എം എൽ എ കൺവീനറായ യു ഡി എഫ് സമിതിയാണ് ധവളപത്രം തയ്യാ റാക്കിയത്

സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അർജന്റീനിയൻ സംവിധായകനായ ഫെർണാണ്ടോ സൊളാനസിന് ആജീവനാന്ത സംഭാവനക്കുള്ള പൂർസ്ക്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും

സമാപന സമ്മേളനത്തിന് ശേഷം മത്സരവിഭാഗ ത്തിൽ സുവർണ്ണ ചകോരത്തിന് അർഹമാകുന്ന ചിത്രം നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും

കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സി യെ നേരിടും

പഞ്ചാബിലെ സംഗ്രൂരിൽ ദേശീയ സ്കൂൾ മീറ്റിൽ കേരളം ഇന്നലെ ഒരു സ്വർണവും രണ്ട് വെങ്കലവും നേടി

ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തും ഫ്രാൻസ് മൂന്നാം സ്ഥാനത്തുമാണ്

പാലക്കാട് ജില്ലാ കേരളോൽസവത്തിന് കായിക മത്സരങ്ങളോടെ ഇന്ന് തുടക്കമാകും മൂന്നു ദിവസത്തെ പ്രിപാടികൾ നാളെ മുണ്ടൂരിൽ മന്ത്രി എ

വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ഹോട്ട് എയർ ബലൂൺ സവാരിക്ക് പാലക്കാട് ജില്ലയിൽ ഇന്ന് തുടക്കമാകും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന സാഹസിക സവാരിയുടെ ഉദ്ഘാടനം രാവിലെ കോട്ടമൈതാനത്ത് നടക്കും ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിസ്ഥിതി ബോധവത്കരണ സന്ദേശവുമായി പാലക്കാട് കോട്ട മുതൽ മലമ്പുഴ കവ വരെ ഇന്ന് സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്

കൊച്ചി പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപം കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജലവിഭവ വകു പ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടി ഇതു സംബന്ധിച്ച് എറണാകുളം ജില്ലാ കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടാനും നടപടികൾ സ്വീകരിക്കാനും ജലവിഭവ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി

ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് സെമിനാറുകളും മറ്റ് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പി ക്കുമെന്ന് കമ്മീഷൻ അംഗം മുഹമ്മദ് ഫൈസൽ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കായി ട നടത്തിയ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പടപ്പേങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം സംസ് ക്കരിക്കുന്നതിന് അനധികൃതമായി പണം ഈടാക്കുന്നുവെന്ന പരാതിയിൽ ഇടപെടു മെന്നും കമ്മീഷൻ അറിയിച്ചു

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ വയനാട് ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ നേതൃത്വത്തിൽ മുക്കത്ത് സംഘ ടിപ്പിച്ച പൊതുജന ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും വിവരി ക്കുന്ന സ്റ്റാളുകളും കലാപരിപാടികളും മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്

സംസ്ഥാനത്തെ ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് ഊർജ്ജസംരക്ഷണ ദിനമായി ആചരിക്കും

സമാധാനത്തിന്റെ സംസ്കാരം പുലരണമെന്നും മാനവികത ഉയർത്തിപിടിക്കണമെന്നും എഴുത്തു കാരൻ എം

കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ വൈദ്യരത്നം പി

വാരിയർ സ്മാരക പ്രഭാഷണം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

വൃാജ മരുന്നു കുറിപ്പടികൾക്കെതിരെ ചില്ലറ മരുന്നു വൃാപാരി കൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയകരമായ കുറിപ്പടികളിൽ മരുന്നുകൾ വിൽക്കരുതെന്നും ഡ്രഗ്സ് കൺട്രോളർ തിരുവനന്തപുരത്ത് അറിയിച്ചു